നടപടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രില്പ്യിരുത്തി

കപൂറിനെ എൻഫോഴ്സ്മന്റു ഡ്യറക്ടറേറ്റ് അറസ്റ്റു ചെയ്തു

എൻ്റ്വിജയൻപിള്ള അന്തരിച്ചു

നേരിടും

ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക് പുരുഷൻമാരുമായി താരതമൃം ചെയ്യുമ്പോൾ വേതനത്തിൽ തുലൃത പൂർണമായും ലഭിച്ചിട്ടില്ല

എന്നാൽ സ്ത്രീ സമത്വവും വിമോചനവും സംബന്ധിച്ച് സമൂഹത്തിന്റെ ചിന്തയിലും മനോഭാവത്തിലും കാതലായ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് അന്താരാഷ്ട്ര വനിതാദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാരീശക്തി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നട്ട്പ്പാക്കുന്ന വ്യക്തികൾ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവൃത്ക്ക് ്ദേശീയ പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്യും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലും ലിംഗ സമത്വം ഉറപ്പാക്കുന്നതിലും അന്താരാഷ്ട്ര വനിതാദിന അവസരം ഒരുക്കുമെന്ന് വനിതാദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്ക് തുല്യ അവസരം നൽകുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് കരസേനയുടെ പത്ത് വിഭാഗങ്ങളിലും സ്ത്രീകൾക്ക് സ്ഥിരം കമ്മീഷൻ നൽകിയതുൾപ്പെടെ വിവിധ വകുപ്പുകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ നിരവധി തീരുമാനങ്ങളാണ് പ്രതിരോധ മന്ത്രാലയം കൈക്കൊണ്ടതെന്ന് ശ്രീ രാജ്നാഥ് സിംങ് പറഞ്ഞു

ഏറ്റവും കൂടുതൽ വനിതാ ജീവനക്കാരുടെ പങ്കാളിത്തത്തോടെ നിരവധി അന്തർദേശീയ ആഭ്യന്തര വിമാനസർവീസുകൾ നടത്തുന്ന ഏക വിമാനകമ്പനിയാണ് എയർ ഇന്ത്യ

കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ്ചൂർദ്ധൻ വിദേശകാര്യമന്ത്രി എസ്

സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് ശ്രീ

കൊറോണ വൈറസിനെ കുറിച്ചുള്ള വ്യാജപ്രചരണങ്ങളിൽ ഭയപ്പെടേണ്ടതില്ലെന്ന് ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോട് പറഞ്ഞിരുന്നു

ഇത്തരം രോഗലക്ഷണങ്ങളുള്ളവരെ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തും

ജമ്മുകാശ്മീരിലെ കത്വയിൽ ജൻ ഔഷധി ദിനാഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഗുണമേന്മിയുള്ള ജനറിക് മരുന്നുകൾ വിലക്കുറവിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആരംഭിച്ചത് എല്ലാവർക്കും കുറഞ്ഞ ചിലവിൽ ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കുന്നതിന് ്ഗീപ്പൺമെന്റ് ആവിഷ്കരിച്ച വിവിധ പദ്ധതികളെക്കുറിച്ച് അവബോർ സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ജമ്മുകാശ്മീർ ക്രേന്ദ്രണ പ്രദേശമായി മാറിയപ്പോൾ വികസനത്തിന്റെ വേഗത് പ്ടർദ്ധിച്ചതായും ശ്രീ ജിതേന്ദ്ര സിംങ് പറഞ്ഞു

മുംബൈയിൽ എൻഫോഴ്സ്മെന്റിന്റെ രണ്ടു ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷണാണ് അറസ്റ്റ്

കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം അനുസരിച്ച് റാണ കപൂറിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്

ചവറ മടപ്പളളി കിഴക്കും തലയ്ക്കാൽ വിജയമന്ദിരത്തിൽ നാരായണ പിളളയുടെയും ഭവാനിയമ്മയുടെയും മകനാണ് കലാലായ രാഷ്ട്രീയത്തിലൂടെ ഇടതു പക്ഷ വിദ്യാർഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായാണ് പൊതു രംഗത് പ്രവേശിച്ചത് ചവറ പഞ്ചായത്തിൽ ആർ എസ് പി അംഗമായി മടപ്പള്ളി വാർഡിൽ നിന്നു രണ്ടു തവണ തെരഞ്ഞെടുക്കപ്പെട്ടു

പിന്നീട് കോൺഗ്രസിൽ ചേരുകയും തുടർന്ന് രാജിവച്ചു ഡി ഐ സിയിൽ ചേരുകയും ചെയ്തു

നിയമസഭ തെരഞ്ഞെടുപ്പിൽ സി എം പിയിൽ ചേർന്ന് എൽ ഡി എഫ് സ്ഥാനാർഥിയായി ചവറയിൽ മത്സരിച്ചു വിജയിച്ചു അടുത്തിടെ സി പി ഐ എമ്മിൽ ചേർന്നു നിലവിൽ ജില്ലാ ഹ്യൂമൻ റിസോഴ്സ് സഹകരണ സംഘം പ്രസിഡന്റ് ആണ്

നാല്തവണ ചാമ്പ്യൻമാരായ ഓസ്ട്രേലിയയെ ലോകകപ്പിന്റെ ആദ്യമത്സരത്തിൽ പരാജയപ്പെടുത്തികൊണ്ടായിരുന്നു ഇന്ത്യയുടെ തുടക്കം

ലോകകപ്പിന്റെ ഏഴാംപതിപ്പിൽ ഓസ്ട്രേലിയയുടെ തുടർച്ചയായ ആറാമത്തെ ഫൈനൽ പോരാട്ടം എന്ന പ്രത്യേകതയും ഇന്നത്തെ മത്സരത്തിനുണ്ട്

ഇന്ത്യൻ വനിതാ ടീമിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയാശംസകൾ നേർന്നു

എ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൻ ഔഷധി കേന്ദ്രങ്ങളിലെ ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ സംവദിക്കുകയായിരുന്നു അദ്ദേഹം കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ എന്ന ലക്ഷ്യത്തിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെ കണ്ടെത്തും സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കാതെ ഈ പദ്ധതിയിലൂടെ എല്ലാവർക്കും കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നത് ഉറപ്പാക്കാൻ സാധിച്ചതായി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

പ്രതിരോധപ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി പി

പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും വ്യക്തി ശുചിത്വത്തിലൂടെ ഉസ്ഥെസിനെ പ്രതിരോധിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം പ്ല്ചെയ്തു വിദേശികളുടെ സുരക്ഷയ്ക്കായി നടപടികൾ സ്വീകരിക്കാൻ ്പോലീസിന് നിർദ്ദേശം നൽകിയതായും ശ്രീ സർബാനന്ദ സൊനോവാൾ അറിയിച്ചു

ഈ ആവശ്യവുമായി നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഗവൺമെന്റിനെ സമീപിച്ചതായി മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ അറിയിച്ചു